തുടക്കമായി

പാർലമെന്റ് നൽകുമെന്ന് പ്രിത്രീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദി പക്ഷാഘോഷ് പ്രിപാടികളുടെ സംസ്ഥാന തല ന് ഉദ്ഘാടനം തിരുവിത്ത്പുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവ്വഹിച്ചു

മെഡിക്കൽകോളേജിലെയും വിവിധ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിച്ചു

മുൻ രാഷ്ട്രപതി പ്രബണ് മുഖർജി ഉൾപ്പെടെ അടുത്തിടെ അന്തരിച്ച നേതാക്കളെ അനുസ്മരിച്ചാണ് സമ്മേളനം തുടങ്ങിയത്

രാജ്യസഭാ ഉപാദ്ധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പും നടക്കും

കോവിഡ് രോഗവ്യാപന പശ്ചാത്തലത്തിൽ കടുത്ത ആരോഗൃസുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചാണ് സമ്മേളനം

കൊറോണയുടെ പ്രത്യേക സാഹചര്യത്തിലാണ് പാ്ർലമെന്റ് ചേരുന്നതെന്നും രോഗത്തിനെ തിരെ ഫലപ്രദമായ മരുന്ന് കണ്ടെത്തും വരെ ജാഗ്രത തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒട്ടേറെ സുപ്രധാന വിഷയങ്ങളിൽ ഗൌരവമേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വേദിയാകുമെന്നും എല്ലാ അംഗങ്ങളും ഉത്തരവാദിത്തതോടെ അതിൽ പങ്കുചേരുമെന്നും പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു

കേരളീയർ മലയാളത്തിനും ഇംഗ്ലീഷിനുമൊപ്പം ഹിന്ദി പഠിക്കാനും എക്കാലത്തും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ലോക വീക്ഷണം തന്നെ മാറും എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു രണ്ടാഴ്ചത്തെ ആഘോഷത്തിന്റെ ഭാഗമായി കവി സമ്മേളനം സാഹിത്യ സെമിനാർ ഔദ്യോഗിക ഭാഷാ ശിൽപ്പശാല സാഹിത്യ മത്സരങ്ങൾ ഹിന്ദി പ്രചാരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഹിന്ദി ഭാഷയുടെ വികാസത്തിന് സംഭാവ്ദ്ധനകൾ നൽകിയവരെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമണ്ണി അമിത്ഷായും അഭിനന്ദിച്ചു

മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്

ഒൻപത് ലക്ഷത്തിലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്

ജില്ലയിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച രണ്ടുപേരുടെ സമ്പർക്കത്തിലൂടെ അഞ്ചോളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച രോഗി പുൽപ്പള്ളി കാനറാബാങ്കിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഇന്ന് ബാങ്ക് അടച്ചിടാനും ജീവനക്കാരോട് കാറന്റൈനിൽ പ്രവേശിക്കാനും ആരോഗ്യവകുപ്പ് നിർദേശം നൽകിയിട്ടുണ്ട്

കോഴിക്കോട് കോർപ്പറേഷൻ കടലുണ്ടി ചോറോട് വടകര ഫറോക്ക് പ്രദേശങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്

കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒ

അലോട്ട്മെന്റ് ലഭിച്ചവർ നിശ്ചിത തീയതിയിലും സമയത്തും അതത് സ്കൂളുകളിലെത്തി പ്രവേശനം നേടണമെന്ന് അറിയിപ്പിൽ പറയുന്നു

എസ് ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് പുരുഷ കിരീടം ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമിന് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ ടൈ ബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തിയാണ് ഡൊമിനിക് തീം കിരീടമണിഞ്ഞത് അഞ്ച് സെറ്റ് നീണ്ട മത്സരത്തിൽ ആദ്യ രണ്ട് സെറ്റ് പരാജയപ്പെട്ട ശേഷമാണ് ഡൊമിനിക് തീം തിരിച്ചുവരവ് നടത്തിയത്

കൊവിലൂർ ബസ് സ്റ്റാന്റിന് സമീപത്തെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ആരംഭിച്ച ബാർബർ ഷോപ്പ് ദേവികുളം എം

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് കാടാമ്പുഴ കരേക്കാടുനിന്നുള്ള ആറംഗസംഘം കുരുത്തിച്ചാൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ എത്തിയത് ഷോളയാർ ഡാം ഇന്നലെ വൈകിട്ട് തുറന്ന കേരള ഷോളയാർ ഡാമിന്റെ മൂന്നാം നമ്പർ ഗേറ്റ് നീരൊഴുക്ക് കുറഞ്ഞ സാഹചരൃത്തിൽ ഇന്ന് രാവിലെ അടച്ചതായി അധികൃതർ അറിയിച്ചു

കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇത്തവണയും ഭക്തർക്ക് സന്നിധാനത്ത് പ്രവേശനമില്ല

ചെമ്പൈയ്ക്കുള്ള സംഗീത അർച്ചനയും സാംസ്കാരിക ലോകത്തിന് നൽകുന്ന സംഭൂർവനയ്കുമാണ് പൈതൃക സംഗീത ഗ്രാമം എന്ന് മന്ത്രി പറഞ്ഞിക് മഹാകവി ഒളപ്പമണ്ണയുടെയും പ്രശസ്ത പക്ഷി നിരീക്ക്ഷ്ടക്ൻ ഇന്ദുചൂഡന്റെയും സ്മാരകങ്ങളുടെ നിർമാണോദ്ഘാടനം മൃത്തി എ

ബാലൻ നിർവഹിച്ചു പുരസ്ക്കാരം മികച്ച നാഷണൽ സർവ്വീസ് സ്കീം പ്രോഗ്രാം ഓഫീസർക്കുള്ള ഈ വർഷത്തെ ദേശീയ പുരസ്കാരം ഷിനിത്ത് പാട്യത്തിന് കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂൾ അധ്യാപകനാണ് രാജ്യത്തെ മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരം ഈ സ്കൂളിനാണ്